ൾ ൽ ൾ സുൽ ത്താൻബ ത്തേരി സർവ ജന ഹയർ സെ ക്കണ്ടറി സ്കൂളിൽ വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ച സാഹചരൃത്തിൽ വയനാട്ടിലെ എല്ലാ സ്കൂളുകളും അടിയന്തരമായി വൃത്തിയാ ക്കാൻ ജില്ലാ കലക്ടർ നിർദേശിച്ചു പഞ്ചായത്ത സെക്രട്ടറിമാർ സ്കൂളുകളുടെ സുരക്ഷ നേരിട്ട് പരിശോധിക്കണമെന്നും കല ക്ടർ നിർദേശിച്ചിട്ടുണ്ട് പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെ ക്കുറിച്ച് ജില്ലയിലെ രണ്ട് ഡി എഫ് ഒ മാരുടെയും വൈൽഡ് ലൈഫ് ഗാർഡുകളുടെയും നേതൃത്വത്തിൽ പരിശീലനം നൽക ണമെന്നും കലക്ടറുടെ ഉത്തരവിൽ പറയുന്നു വയനാട് ജില്ലാ ജഡ്ജിയായ എ ഹാരിസ് വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ച സുൽത്താൻ ബ്ത്തേരി സർവ്വജന ഹയർ സെക്കണ്ടറി സ്കൂളിലെത്തി സാഹചര്യങ്ങൾ പരിശോധിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർപേഴ്സണും അദ്ദേ ഹത്തൊടൊപ്പമുണ്ടായിരുന്നു ഹൈക്കോടതി ജഡ്ജി നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്കൂളിലെത്തിയതെന്നും പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളിലെ സ്ഥിതി ശോചനീയാവസ്ഥയാണെന്നും പ്രധാ നഅധ്യാപകൻ ഉൾപ്പെടെ അധ്യാപകർക്ക് വീഴ്ചയുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നട പടിയാണ് വേണ്ടത് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കൽപ്പറ്റയിൽ ഉന്നതതല യോഗം ചേരുമെന്ന് ജില്ലാ ജഡ്ജി അറിയിച്ചു എ ഇ ഒ ഡി ഡി ഇ പ്രധാന അധ്യാപകൻ എന്നിവർ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറ ഞ്ഞു

അധ്യാപകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും വരെ ക്ലാസുകൾ ബഹിഷ്കരിക്കു മെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു കുറ്റക്കാർക്കെതിരെ നടപടിയാവശ്യപ്പെട്ട് കൽപ്പറ്റയിൽ യുവ ജന സംഘടനകൾ ഡി ഡി ഇ ഓഫീസിലേക്ക് മാർച്ച് ആരം ഭിച്ചു

യു യൂത്ത് കോൺഗ്രസ് ഡി

എഫ്ഐ എസ് എഫ് ഐ സംഘടനകളാണ് മാർച്ച് നടത്തിയത് വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം ചർച്ച ചെയ്യ ണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തരപ്രമേയ നോട്ടീ സ് എൻ കെ പ്രേമചന്ദ്രനാണ് നോട്ടീസ് നൽകിയത് സ്കൂൾ അധികൃതരുടെയും ഡോക്ടർമാരുടെയും ഭാഗത്ത് കുറ്റകരമായ അനാവസ്ഥയുണ്ടായെന്ന് നോട്ടീസിൽ കുറ്റപ്പെടുത്തി ൃ പന്തീരാങ്കാവിൽ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ യു എ പി എ ചുമത്തിയ നടപടി ഗവൺമെന്റ് പുനഃപരിശോധിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ പറഞ്ഞു നിയമപരമായ പരിശോധനയിലൂടെ തിരു ത്താനെ ഇനി ഗവൺമെന്റിന് കഴിയൂവെന്നും അത് ഗവൺമെന്റ് ചെയ്യുമെന്നും പാർട്ടി പത്രത്തിലെഴു തിയ ലേഖ നത്തിൽ അദ്ദേഹം വ്യക്തമാക്കി മാവോയിസ്റ്റുകളെ യഥാർത്ഥ മാർക്സിറ്റ് ലെനിനിസ്റ്റുകളായി സിപിഐഎം കാണുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു അട്ടപ്പാ ടിയിൽ കൊല്ലപ്പെട്ടവരും കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ താവ ളമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമായ മാവോയിസ്റ്റുകൾ തോക്കിൻ കുഴലിലൂടെ വിപ്ലവം എന്ന കാലഹരണപ്പെട്ട സിദ്ധാന്തത്തിന്റെ പ്രയോക്താക്കളാണെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി മാവോയിസ്റ്റുകൾക്കെതിരെ അട്ടപ്പാടി ഉൾപ്പെടെ സ്ഥലങ്ങലി ലുണ്ടായ പൊലീസ് നടപടി എൽ ഡി എഫിന്റെയോ പിണറായി ഗവൺമെന്റിന്റേയോ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാന ത്തിലല്ലെന്നും കോടിയേരി അറിയിച്ചു പ്രളയാനന്തര പുനർ നിർമാണ വികസന പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകി

ഇതിൽ നൂറ്റി എൺപത്തി രണ്ടര കോടി കുടിവ്വെള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ഉപയോഗിക്കൂം

അമ്പത്തിമൂന്നര കോടി ക്സീൻ കേരളാ കമ്പനിക്ക് നൽകും

മരടിലെ അനധികൃത ഫ്ളാറ്റ് നിർമ്മാതാക്കളിൽ നിന്ന് നഷ്ടപ രിഹാരം ലഭിക്കണമെന്ന ഫ്ളാറ്റുടമകളുടെ പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ പരിഗണിക്കാമെന്ന് സൂപ്രീം കോടതി അറിയിച്ചു ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന സുപ്രീംകോ ടതി വിധി നടപ്പാക്കി വരികയാണെന്ന് അറിയിച്ച സംസ്ഥാന ഗവ അഭിഭാഷകൻ ഇതുസംബന്ധിച്ച സ്ഥിതി വിവര റിപ്പോർട്ടും കോട തിയിൽ ഹാജരാക്കി

അറിയിച്ചു

ഗാന്ധി പ്രതി മയ്ക്കു സമീപം നടത്തിയ പ്രതി ഷേധ പരി പാ ടി യിൽ കോൺഗ്രസ് നേതാക്കളായ ശശി തരൂർ കാർത്തി ചിദംബരം മനീഷ് തിവാരി തുടങ്ങിയവരടക്കം നേതാക്കൾ പങ്കെടുത്തു റിസർവ് ബാങ്കിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബോണ്ടിനെ സംബന്ധിച്ച് വിരുദ്ധാഭിപ്രായമുണ്ടെന്ന റിപ്പോർട്ടുകൾ ഗവ നിഷേധിച്ചിരുന്നു ജെ എൻ യു സർവ്വകലാശാലയിലെ ഫീ വർദ്ധനയും സമ രവും ശ്യൂനൃവേളയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യ സഭയിൽ പ്രതിപക്ഷ നോട്ടീസ് കോൺഗ്രസിലെ ദിഗ് വിജയ് സിംഗും സിപിഐഎമ്മിലെ കെ കെ രാഗേഷുമാണ് നോട്ടീസ് നൽകിയത് മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ ബിജെപിയിൽ നിന്ന് എന്ത് വാഗ്ദാനം ഉണ്ടായാലും അവ രോടൊപ്പം ചേരില്ലെന്ന് ശിവസേന വൃക്തമാക്കി വാഗ്ദാനങ്ങ ളുടെ സമയം അവ സാനിച്ചെന്നും കോൺഗ്രസും എൻ

പിയുമായി ചേർന്ന് ശിവസേന മുഖ്യമന്ത്രി മഹാരാഷ്ട്ര ഭരിക്കു മെന്നും പാർട്ടി നേതാവ് സഞ്ജയ് റാവത്ത് മുംബൈയിൽ വാർത്താലേഖകരോട് പറഞ്ഞു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകണമെന്നാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്ര ഹിക്കുന്നതെന്നും സഞ്ജയ് റാവത്ത് അവകാശപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി തന്റെ ആശയി ങ്ങളും ചിന്തകളും പങ്ക് വയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരി പാടി മൻ കി ബാത് മറ്റന്നാൾ

തുടർന്ന് പ്രാദേ ശിക ഭാഷകളിൽ പരിപാടി കേൾക്കാം

ദൂരദർശനും പരിപാടി സംപ്രേഷണം ചെയ്യും രാത്രി എട്ടിന് പുനഃപ്രക്ഷേപണമുണ്ടാകും ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് അല്പസമയ ത്തിനകം കൊൽക്കത്ത ഈഡൻഗാർഡൻസ് സ്റ്റേഡിയത്തിൽ തുടങ്ങും ആദ്യ പകൽ രാത്രി മത്സരമാണിത് ഇൻഡോറിലെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കായിരുന്നു വിജയം തൃശൂരിനെ ബാലസൌഹൃദ്യ ജില്ലയാക്കുന്നതിന്റെ ഭാഗമായി തയാറാക്കിയ വെബ് പോർട്ടൽ മന്ത്രി എ

ഡിസംബർ അഞ്ചു വരെ തിങ്കളാഴ്ചകളിൽ ഒഴികെ നാഗർ കോവിൽ മംഗളുരു ഏറനാട് എക്സ്പ്രസ് ഒരു മണിക്കൂർ വൈകിയായിരിക്കും സർവീസ് നടത്തുക

മാർക്ക് ദാന വിവാദത്തിൽ സർവ്വകലാശാല എടുക്കേണ്ട നട പടികൾ സംബന്ധിച്ച് കേരള സർവ്വകാശാല സിൻഡിക്കേറ്റ് ഇന്ന് ചർച്ച ചെയ്യും വിദഗ്ധ സമിതി റിപ്പോർട്ട് യോഗത്തിന്റെ പരിഗ ണനയ്ക്കു വരും സംസ്ഥാന ്യുവജന ക്ഷേമ ബോർഡിന്റെ കീഴിലെ ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ മുഴുപ്പില ങ്ങാട് ബീച്ചിൽ കടൽ നീന്തൽ പരിശീലനം തുടങ്ങി ജില്ലാ പഞ്ചാ യത്ത് പ്രസിഡണ്ട് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കേരള സോപ്സ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കേരള സോപ്സിലെ തൊഴിലാളികൾ സൂചനാ പണിമൂടക്ക് തുടങ്ങി

സമാപന സമ്മേളനം വൈകീട്ട് ആറിന് നടക്കും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് ഭവന പദ്ധതി പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി മേഖലാ മേധാവി ലാവണ്യ ഗലോട്ടിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം മാതൃകാപരമായ പ്രവർത്തനമാണ് നഗരസഭ നടപ്പാക്കുന്നതെന്ന് അഭിപ്രായപ്പെ ട്ടു ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെമ്പൈ സംഗീതോത്സവം നാളെ ആരംഭിക്കും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ ചെമ്പൈ സ്മാരക പുരസ്കാരം ഉമയാൾപുരം കെ ശിവരാമന് മന്ത്രി സമ്മാ നിക്കും